അർജ്ജുന അവാർഡ് മുഹമ്മദ് അനസിന് മാനുവൽ ഫ്രെഡറിക്സിന് ധ്യാൻചന്ദ് അവാർഡ്

മലയാളി ക്രിക്കറ്റ് ത്രാം എസ് ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് ബി സി സി ഐ ഏഴു വർഷമായി കുറച്ചു

എസ് ഇ

സംസ്ഥാനത്തെ ശൂചീകരണ സിനിമ തിയേറ്റർ മേഖലയിലെ തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി പുതുക്കി പുരസ്കാരം മൂന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ വർഷത്തെ ദേശീയ കായിക പുരസ്കാരങ്ങൾ ദ്രോണാചാരൃ അവാർഡ് നേടിയ ബാഡ്മിന്റൺ താരം വിമൽകുമാറും അർജ്ജുന അവാർഡ് നേടിയ അത്ലറ്റിക് മുഹമ്മദ് അനസും ധ്യാൻചന്ദ് അവാർഡ് നേടിയ ഹോക്കി താരം മാനുവൽ ഫ്രെഡറിക്സുമാണ് ദേശീയ കായിക പുരസ്കാരം നേടിയ മലയാളികൾ ഗുസ്തി താരം ബജ്റംഗ് പുനിയയ്ക്കും പാര അത്ലറ്റിക്സ് താരം ദീപ മാലിക്കിനും രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു കായിക രംഗത്തെ മികവിനുള്ള അംഗീകാരമായാണ് എല്ലാ വർഷവും ദേശീയ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്

മലപ്പുറം കവളപ്പാറയിലും വയനാട് മേപ്പാടി പുത്തുമലയിലുമാണ് മൃതദേഹം കണ്ടെത്തിയത്

കവളപ്പാറയിൽ ഇന്ന് കണ്ടെത്തിയ മൃതദേഹവും ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല

പന്ത്രണ്ടോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എല്ലാവരെയും കണ്ടെത്തുംവരെ തെരച്ചിൽ തുടരുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ ജാഫർ മാലിക് പറഞ്ഞു വിശദവിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു

അഞ്ച് പേർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ മഴകുറഞ്ഞതോടെ ക്യാമ്പുകളിലുള്ളവർ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി

വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി രവി കുമാർ

ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർകോട്ടയം എറണാകുളം കാസർഗോഡ് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴക്ക് സാധൃതയുള്ളത് തോമസ് ഐസക് സാമ്പത്തിക മാന്ദ്യം മറികടക്കുന്നതിനായി സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയുയർത്തണമെന്ന് ധനമന്ത്രി തോമസ് ഐസക് ഇക്കാരൃം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമെന്നും ധനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ പ്രളയ സെസ് പിൻവലിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രളയ സമാനമായ സാഹചരൃം സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമാകുമെന്നും ശ്രീ തോമസ് ഐസക് പറഞ്ഞു രമേശ് ചെന്നിത്തല പതിനായിരം രൂപയുടെ ധനസഹായം ഗവൺമെന്റ് അംഗീകൃത കൃാമ്പുകളിൽ താമസിച്ച ദുരിത ബാധിതർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയ ഗവൺമെന്റ് ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി നിരവധിപേർ ബന്ധുക്കളുടേയും സുഹൃത്തുക്കളുടേയും മറ്റ് അഭ്യുദയകാംക്ഷികളുടേയും വീടുകളിൽ അഭയം പ്രാപിച്ചിരുന്നു ഈ കുടുംബങ്ങൾക്ക് പതിനായിരം രൂപയുടെ അടിയന്തിര സഹായം നിഷേധിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടി മഞ്ജു വാര്യർ കനത്ത മഴയെയും മണ്ണിടിച്ചിലിനെയും തുടർന്ന് ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിയ നടി മഞ്ജു വാര്യർ അടക്കമുള്ള സിനിമാ സംഘത്തെ സുരക്ഷിതസ്ഥാനത്തേക്ക് മാറ്റി സംസ്ഥാന ഗവൺമെന്റിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി എ

കേന്ദ്ര മന്ത്രി വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരം ഇവരെ ഹിമാചൽപ്രദേശ് ഗവൺമെന്റ് മണാലിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കയറ്റം എന്ന സിനിമ ചിത്രീകരണത്തിന് ഹിമാലയൻ താഴ്വരയിലെ ഛത്രുവിൽ എത്തിയ സംഘമാണ് കുടുങ്ങിയത്

ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് ബി സി സി ഐ

ഇതുസംബന്ധിച്ച് ബി സി സി ഐ ഓംബുഡ്സ്മാൻ ഡി

സി സി ഐ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയത് ആ വർഷത്തെ ഐ

എല്ലിൽ രാജസ്ഥാന് റോയൽസ് താരമായിരുന്ന ശ്രീശാന്ത് ഒത്തുകളിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഈ വിലക്ക്

ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വിഹിതം പ്രത്യേകം ചെക്കുകളായാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് കൂലി നിരക്ക് സംസ്ഥാനത്തെ സിനിമ തിയേറ്റർ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നൽകേണ്ട ഏറ്റവും കുറഞ്ഞ കൂലി നിരക്ക് പുതുക്കി ഉത്തരവായി ഏറ്റവും കുറഞ്ഞ കൂലി നിരക്കുകളും പുതുക്കിയിട്ടുണ്ട്

ഇതര പാർട്ടികളിൽ നിന്നടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് പ്രമുഖരടക്കം നിരവധി പേർ ബി ജെ പിയിൽ ചേർന്നു

വഫ ഫിറോസ് മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീർ വാഹനം ഇടിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ രാം പ്രതിയും ശ്രീറാം വെങ്കിട്ടരാമന്റെ സുഹൃത്തുമായ വഫ ഫിറോസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെന്റ് ചെയ്തു മൂന്ന് മാസത്തേക്കാണ് സ്പെൻഷൻ കേസിൽ ഒന്നാം പ്രതിയായ ശ്രീറാമിന്റെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് ഇന്നലെ സസ്പെന്റ് ചെയ്തിരുന്നു

മേഴ്സിക്കുട്ടിയമ്മയുടെ വാഹനം ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസുകാരെ സർവീസിൽ തിരിച്ചെടുത്തു മൂന്നു പോലീസുകാരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്

ചൈനയുടെ ഇതിഹാസ താരം ലിൻ ഡാനെ പരാജയപ്പെടുത്തിയാണ് മലയാളിയായ പ്രണോയ് മൂന്നാം റൌിൽ കടന്നത്